അതിർത്തിയിലെ വിഷയങ്ങൾ സംബന്ധിച്ച ഇന്തൃ ചൈന സൈനികതല ചർച്ച പൂർത്തിയായി രാഷ്ട്രീയ നയതന്ത്രതല ചർച്ചകൾ തുടരും

കോവിഡ് മർണ്ണം നാല് ലക്ഷം കടന്നു

ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി പതിനായിരത്തിലേറെ പേർ

സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധൃത ഏഴ് ജില്ലകളിൽ യെല്ലോ അലെർട്ട്

ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തം എന്ന സന്ദേശത്തോടെ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാദിനം

കിഴക്കൻ ലഡാക്കിലെ മോൾദോ പ്പുസൂൾ അതിർത്തി പോയിന്റിലായിരുന്നു ഇന്ത്യ ചൈന ഉന്നു സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം

ഇന്ത്യൻ സംഘത്തെ ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദ്ര സിംഗും ചൈനീസ് സംഘത്തെ മേജർ ജനറൽ ലിൻ ലൂയിയും നയിച്ചു നിലവിലെ സാഹചര്യം ലഘൂകരിക്കാൻ എല്ലാ തരത്തിലുള്ള നയതന്ത്ര രാഷ്ട്രീയ സൈനികതല ചർച്ചകൾ നടത്തുമെന്ന് യോഗത്തിന് മുന്നോടിയായി ഇന്ത്യൻ സേന വൃക്തമാക്കിയിരുന്നു

വിദേശകാര്യ എല്ലാത്തരത്തിലുമുള്ള പ്രതിസന്ധിയും സമാധാന ശ്രമങ്ങളിലൂടെ പരിഹരിക്കുമെന്നും ഇരുവിഭാഗവും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു

മരണസംഖ്യ നാലുലക്ഷം കവിഞ്ഞു

കോവിഡ് രോഗിക്ട്ളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ്

രോഗം സ്ഥിരീകരിച്ചാൽ അവരെ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റും

മൂന്നാം ഘട്ടത്തില്ലെ ്ടിക്കറ്റ് വിൽപനയ്ക്കുള്ള പ്രതികരണം മനസ്സിലാക്കി ക്ടൂടുതിൽ വിമാനങ്ങൾ സർവ്വീസ് നടത്തുമെന്നും എയർ ഇന്ത്യ ്വൃക്തമാക്കിയിട്ടുണ്ട്

വെള്ളിയാഴ്ച വൈകിട്ടാണ് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള രാജ്യത്തിന് നാവിക സേനയുടെ ഇടപെടലിന്റെ ഭാഗമായ യാത്ര ആരംഭിച്ചത്

രോഗലക്ഷണമില്ലാത്തവർ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞാൽ മതി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ ദിശയിൽ റിപ്പോർട്ടു ചെയ്യണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ പുതുക്കിയ മാർഗനിർദേശം

ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി

പ്രധാന ട്രെയിനുകൾ വരികയും പോവുകയും ചെയ്യുന്ന സമയം അതത് ജില്ലാ പൊലീസ് മേധാവിമാർ സ്റ്റേഷനിലെത്തും

ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും മഞ്ഞ അലർട്ടുണ്ട്

നിയന്ത്രണരേഖയിലായിരുന്നു പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇന്നലെ രാത്രി എട്ട് മണിയോടെ പാക് സേന വെടിയുതിർക്കുകയായിരുന്നു